ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയുടെ അംഗീകാരം

ഉറപ്പാക്കണമെന്ന് ആഖ്ത്ത്പ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷ്നെ കണ്ടു

നയ അവലോകന യോഗം ഇന്നു മുതൽ

ഇന്ത്യൻ താരങ്ങൾ രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

എന്നാൽ ഇ്മീന്നെതിരെ മേൽക്കോടതിയെ സമീപിക്കാനും രണ്ടാഴ്ചയ്ക്കുളളിൽ കോടതിയിൽ അപ്പീൽ നൽകാനും മല്യയ്ക്ക് അനുവാദമുണ്ട്

യിൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന മല്യയെ ഇന്തൃയ്ക്കു വിട്ടുനൽകാവുന്നതാണെന്ന് യു

കോടതി കഴിഞ്ഞ ഡിസംബറിൽ വിധിച്ചിരുന്നു

അന്വേഷണം തടസ്സപ്പെടുത്താനും തെളിവ് നശിപ്പിക്കാനും പൊലീസ് ശ്രമിച്ചുവെന്നാണ് സിബിഐ യുടെ വാദം കൊൽക്കത്ത പൊലീസ് കമ്മീഷണർ രാജീവ് കുമാറിനോട് സിബിഐ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ പശ്ചിമ ബംഗാൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്നുമാണ് സിബിഐ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അസാധാരണ സാഹചര്യമാണ് ഉണ്ടായ്ടിട്ടുള്ളതെന്നും വിഷയം അടിയന്തരമായി പരിഗണിക്കണമെന്നും ക്യൂ നിറ്റിബിഐ യ്ക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷ്ടിർട്ട് മേത്ത പറഞ്ഞെങ്കിലും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷന്റിയ ബഞ്ച് കേസ് ഇന്നത്തേയ്ക്ക് മാറ്റുകയായിരുന്നു

ബി ഐ യുടെ നടപടിയ്ക്കെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മീമത്ാ ബാനർജി ആരംഭിച്ച സത്യാഗ്രഹം തുടരുകയാണ്

ഇന്നലെ കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നാഷണൽ കോൺഫറൻസ് നേതാവ് ഉമർ അബ്ദുള്ള സി

ഐ നേതാവ് ഡി രാജ ടി

സി നേതാവ് ഡരേക് ഒബ്രിയൻ എൻ സി പി നേതാവ് മജിദ് മേനോൻ തുടങ്ങിയവരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനുകളിലെ ഫലങ്ങൾ പി

പാറ്റ് സംവിധാനവുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു

അന്നുമുതൽ ഇയാൾ ഇ

ഡൽഹി സ്വദേശിയും അഭിഭാഷകനുമായ ഗൌതം ഖൈത്താനുമായി ചേർന്ന് സക്സേന ഗൂഡാലോചന നടത്തിയതായി ഇ

തുടർന്നാണ് കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ കോടതി ഉത്തരവിട്ടത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കരാറിൽ അനുകൂല നിലപാടെടുക്കാൻ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഉദ്യോഗസ്ഥർ വ്യോമസേന ഉദ്യോഗസ്ഥർ എന്നിവരെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ സക്സേനയും കൂട്ടാളിയായ ഗൌതം വൈത്താനും ചേർന്ന് സൃഷ്ടിച്ചതായും ഇ

സംഭവത്തിൽ ആളപായമോ നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രീനഗറിലെ വസീർബഗിലെ സി ആർ

ഇരു സംഭവങ്ങളുടെയും ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല ഇന്നലെ വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിൽ നിന്ന് ഒരു ജയ്ഷ് ഇ മുഹമ്മദ് തീവ്രവാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തു

ഒമ്പത് നിരീക്ഷക രാജ്യങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കൂർ ദുരന്ത നിവാരണ മാനേജ്മെന്റ് സംബന്ധിച്ച കരട് രേഖ സമ്മേളനം ചർച്ച ചെയ്യും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വിദേശ കാര്യ മന്ത്രാലയവും സംയുക്തമായാണ് രണ്ടു ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്

ഇന്നലെ ലോക കാൻസർ ദിനത്തോട് അനുബന്ധിച്ച് ടിറ്ററിൽ കുറിച്ച സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

ശക്തികാന്ത ദാസ് ആർ

ഐ

യോഗ്ടത്തീൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ റിസർവ് ബാങ്ക് മാറ്റ് പ്രര്യത്താൻ സാധൃതയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിഗമനും

വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം

റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിൽ സാധാരണക്കാർക്കുള്ള പങ്ക് തിരിച്ചറിയാനും റോഡ് സുരക്ഷയിൽ അവരെ ബോധവത്കരിക്കാനും റാലി സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രത്യാശ പ്രകടിപ്പിച്ചു ജനങ്ങൾ ഗാന്ധിയൻ ആശയങ്ങളായ സമാധാനം ക്ഷമ സഹിഷ്ണുത എന്നിവ സ്വീകരിച്ചാൽ റോഡ് ഉപയോഗത്തിലെ അവരുടെ മനോഭാവം മെച്ചപ്പെടുത്താനാകുമെന്ന് ശ്രീമതി സുഷ്ടിമപ്പു സ്ഥരാജ് അഭിപ്രായപ്പെട്ടു വാഹനമോടിക്കുമ്പോൾ മാനസിക സ്മാർമ്മാന്ം പൂലർത്തുകയാണെങ്കിൽ റോഡപകടങ്ങൾ വളരെയധികൾ കുറയ്ക്കാനാകുമെന്നും അവർ ഓർമ്മിപ്പിച്ചു

സംസ്ഥാന ബജറ്റിൽ പ്രളയ സെസ് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച ചില നടപടിക്രമങ്ങൾ പൂർത്തിയാകാനുള്ളതിനാലാണ് കാലതാമസമെന്നും മന്ത്രി അറിയിച്ചു ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഒരു ശതമാനം പ്രളയ സെസ് ചുമത്തുന്നത് വിലക്കയറ്റത്തിന് വഴിതെളിയിക്കുമെന്ന പ്രചാരണം ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു

കർഷകരുടെ ഹ്രസ്വകാല വായ്പാ ആവശ്യങ്ങൾ കൃത്യമായി ലഭൃമാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് ക്ടൂർഡ് പദ്ധതി

ആഭ്യന്തര ഏല കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഗുണനിലവാരം കുറഞ്ഞ ഏലം ഇറക്കുമതി തടയാനും ലക്ഷ്യമിട്ടാണിത്

ഉത്തർപ്രദേശിന്റെ മുഖഛായ മാറ്റാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വിനോദസഞ്ചാര മേഖലയെ വളർത്താനും കുംഭമേളയുടെ സംഘാടനം സഹായിച്ചതായും അദ്ദേഹം വിലയിരുത്തി

ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദർശനം പ്രമാണിച്ച് മാനവിക സാഹോദര്യ പുരസ്കാരവുംയു

ഇ പ്രധാനമന്ത്രി മൊഹമ്മദ്ബിൻ റാഷിദ് പ്രഖ്യാപിച്ചു

ടി